ഉത്തരവാദിത്വമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

കാണിച്ച് നഗരസഭയ്ക്ക് മറുപ്പടി നൽകി

ഘട്ടത്തിലേക്ക്

ആചരിക്കുന്നു

കോഴിക്കോട് തുടക്കമായി

കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിന് സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനായി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ സന്ദേശ പ്രചരണ ബൈക്ക് റാലി കൂത്തു പറമ്പ് നിർമ്മലഗിരി കോളേജിൽ ഫ്ളാഗ് ഓഫ് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സുരക്ഷിതമായ ബാല്യം കൂട്ടികളുടെ അവകാശമാണ് കൂട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് ഗവൺമെന്റ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കമ്മീഷൻ ചെയർമാൻ പ്പി

കൊച്ചി മരട് ഫ്ളാറ്റ് കൊച്ചി മരടിലെ ഫ്ളാറ്റ് ഉടമകൾ താമസമൊഴിയില്ലെന്ന് കാണിച്ച് നഗരസഭയ്ക്ക് മറുപടി നൽകി ഫ്ളാറ്റ് ഒഴിയണമെന്ന് ആവശൃപ്പെട്ട് തങ്ങൾക്ക് നൽകിയ കത്ത് നിയമാനുസൃതമല്ലെന്ന് ഉടമകൾ പറഞ്ഞു

എ സ്ഥാനാർത്ഥി എൻ

ജെ

ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ ചതയദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന സ്ഥാനാർത്ഥി നാളെ പര്യടനം പുനരാരംഭിക്കും

ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോമിന്റെയും എൽ

എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെയും രണ്ടാം ഘട്ട പ്രചരണ പ്ര്യടനം നാളെ തുടങ്ങും ജോസ് ടോമിന്റെ പര്യടനം മേപ്പിട്യിൽ എ ഐ

മോട്ടോർ വാഹന നിയമഭേദഗതി മോട്ടോർ വാഹന നിയമഭേദഗതി പ്രകാരം പിഴ നിരക്കുകൾ കുത്തനെ ഉയർത്തിയതിനെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിമാരുമായി ഇന്ന് നേരിട്ട് സംസാരിക്കും നിയമഭേദഗതിയുടെ ആവശ്യകത ബോദ്ധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പ്രധാന ലക്ഷ്യം

എസ് ഉൾപ്പെടെ എല്ലാ പി

സി പരീക്ഷകളും മലയാളത്തിൽ കൂടി നടത്തണമെന്നും ഗവൺമെന്റിന്റെ മാതൃഭാഷാനയം പി എസ് സി അംഗീകരിക്കണമെന്നും ആവശൃപ്പെട്ട് ഐക്യമലയാള പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത സമരസമിതി നടത്തുന്ന നിരാഹാര സമരം തുടരുന്നു അപകടം തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ വാഹനാപകടത്തിൽ മലപ്പുറം കുറ്റിപ്പുറം പേരശ്ശന്നൂർ സ്വദേശികളായ നാലുപ്പേർ മരിച്ചു ഏർവാടി തീർത്ഥാടനത്തിനുപോയ അമ്മയും രണ്ടു മക്കളും കാർ ഡ്രൈവറുമാണ് മരിച്ചത്

തിരുവോണവും അവിട്ടവും കഴിഞ്ഞുള്ള നാലാം ഓണനാളിലും ആവേശത്തിനും ആഘോഷങ്ങൾക്കും ഒട്ടും കുറവു വന്നിട്ടില്ല

ടൂറിസം വകുപ്പിന്റെ വിനോദസഞ്ചാര വാരാഘോഷവും ജനപ്രാതിനിധ്യം കൊണ്ട് സജീവമാണ്

ഇന്ന് ഉച്ചയ്ക്കുശേഷം പായിപ്പാട് ജലോത്സവം നടക്കും

സംസ്ഥാനത്തെ വള്ളംകളികളെ കോർത്തിണക്കി മാതൃകയിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഐ

അല്ലലില്പാത്ത ഓണം ദുർബല വിഭാഗങ്ങൾക്കടക്കം അല്ലലില്ലാത്ത ഓണം സമ്മാനിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർഥ്യത്തിലാണ് ഗവൺമെന്റെന്ന് തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു

യുടെ ആഭിമുഖ്യത്തിൽ തുടക്കമായി വള്ളംകളി ജേതാക്കൾ ഓണം ടൂറിസം വരാഘോഷങ്ങളുടെ ഭാഗമായി പൊന്നാനി ബിയ്യം കായലിൽ നടന്ന വള്ളംകളിയിൽ പുറങ്ങ് ഫിറ്റ് വെൽ സ്പോർട്സ് ക്സബ്ബിന്റെ കായൽകുതിര ജേതാക്കളായി

വൈകിട്ട് ജയന്തി ഘോഷയാത്ര ജയന്തി സമ്മേളനം എന്നിവ നടക്കും

രാവിലെ ് ചേളന്നൂർ ശ്രീനാരായണ മന്ദിരത്തിൽ നടന്ന ഗുരുജയന്തി സ്രാംസ്കാരിക സമ്മേളനം ഗതാഗത മന്ത്രി എ

വൈകീട്ട് കോഴിക്കോട് ശിവപുരി ശിവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഗുരുജയന്തി ഘോഷയാത്ര ശ്രീകണ്ഠേശ്വര ക്ഷേത്ര സന്നിധിയിൽ സമാപിക്കും

അണക്കെട്ട് നിറഞ്ഞതോടെ ചെറുതോണി അണക്കെട്ടിലെ ഷട്ടർ ഉയർത്തി അധികൃതർ പരിശോധന നടത്തി വൈദ്യുതി ബോർഡിന്റെ നിർദേശപ്രകാരം ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു അണക്കെട്ടിലെ അഞ്ച് ഷട്ടറുകളും ഉയർത്തി പരിശോധന നടത്തിയത് ഇടുക്കി ഇൻട്രോ വിനോദസഞ്ചാരത്തിന്റെ പുത്തൻ അനുഭവങ്ങൾ പകർന്നുകൊണ്ട് ഇടുക്കി ഹിൽവ്യൂ പാർക്കിലെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രം പ്രകൃതി സൌന്ദര്യ ആസ്വാദനവും സാഹസികതയും കൂടിച്ചേർന്ന സാഹസിക ടൂറിസം പദ്ധതി ഓണക്കാലത്ത് നിരവധി സഞ്ചാരികളെ ആകർഷിക്കുകയാണ്

ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഒ

ബൈക്ക് റാലി കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പീഡനവും ഇല്ലാതാക്കുന്നതിന് സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനായി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ സന്ദേശ പ്രചരണ ബൈക്ക് റാലി ഇന്ന് തുടങ്ങി

എം ലോക്കൽ കമ്മറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുക്യായിരുന്നു അദ്ദേഹം

ഞായറാഴ്ച പുറപ്പെടുന്ന ചെങ്കോട്ട കൊല്ലം പാസഞ്ചർ ഗുരുവായൂർ പുനലൂർ പാസഞ്ചർ പുനലൂർ ഗുരുവായൂർ എന്നീ തീവണ്ടികൾ പുനലൂർ കൊല്ലം പാതയിൽ ഭാഗികമായി റദ്ദാക്കി